എ

തിരുവിതാംകൂർ ദേവസ്പൂം ബോർഡ് തന്ത്രി കുടുംബവും പന്തളം കൊട്ടാരവുമായ്ട്ട് ചാവ്വാഴ്ച ചർച്ചു

എ യുടെ ന്നേതൃത്വത്തിലുള്ള ശബരിമല സംരക്ഷണ ന് യാത്ര തലസ്ഥാനത്ത് എത്തി നാളെ സെക്രട്ടറിയേറ്റിന് മുന്നിൽ സമാപനം

എ

കൂടുതൽ വിവരങ്ങളുമായി അരുൺകുമാർ

വോയിസ് അബുദാബി ദുബായ് ഷാർജ എന്നിവിടങ്ങളിലായിരിക്കും മുഖ്യമന്ത്രിയുടെ സന്ദർശനം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 എ

പ്രിൻസിപ്പൽ സ്ട്രകട്ടറി ഇളങ്കോവനും മാധ്യമ ഉപദേഷ്ടാവ് ജോൺ ബ്രിട്ടാസും മുഷ്യമിന്തിക്കൊപ്പമുണ്ടാകും കടുത്ത നിബന്ധനകളോടെയാണ് മുഖ്യമന്ത്രിക്ക് സന്ദർശനാനുമതി ലഭിച്ചത് വിദേശമലയാളികളിൽ നിന്നുറ്റ് മീലയാളി സംഘടനകളിൽ നിന്നും മാത്രമേ ഫണ്ട് ശേഖരിക്ക്ാവു് വിദേശ രാജ്യങ്ങളുടെ സഹായം സ്വീകരിക്കാൻ പാടില്ല് എന്നും കേന്ദ്രത്തിന്റെ നിർദ്ദേശമുണ്ട്

വിദേശ കാര്യമന്ത്രാലയത്തിൽ നിന്നുള്ള പൊളിറ്റിക്കൽ ക്ലിയറൻസാണ് ഇനി ലഭിക്കേണ്ടത്

തന്ത്രി കുടുംബം പന്തളം കൊട്ടാരം അയ്യപ്പ സേവാസംഘം ശബരിമലയുമായി ബന്ധപ്പെട്ട മറ്റ് സംഘടനകൾ എന്നിവരുമായി ചർച്ച നടത്തുമെന്ന് ദ്ദേപ്സം ബോർഡ് പ്രസിഡന്റ് എ

പത്മകുമാർ പറഞ്ഞു

ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഹൈക്കോടതി നിരീക്ഷകന്റെ സാന്നിധൃത്തിലായിരുന്നു അഭിമുഖം

ജെ പി യും എൻ

എയും ഹൈന്ദവസംഘടനകളും നയിക്കുന്ന ശബരിമല സംരക്ഷണ യാത്ര നാളെ തലസ്ഥാനത്ത് സമാപിക്കും കൂടുതൽ വിവരങ്ങളുമായി അരുൺ കുമാർഎസ്

തുടർന്ന് സെക്രട്ടറിയേറ്റിന് മുന്നിൽ പ്രതിക്ഷേധ ധർണ്ണ ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി മുരളീധർറാവു ഉദ്ഘാടനം ചെയ്യും അരലക്ഷത്തോളം പേർ സംരക്ഷണയാത്രയിൽ പങ്കെടുക്കുമെന്ന് ബി ജെ പി ജില്ലാപ്രസിഡന്റ് എസ്

ഇന്ന് രാവിലെ ആലംകോട്ട് നിന്ന് ആരംഭിച്ച യാത്രയിൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള പ്രവർത്തകർ അണിചേർന്നു

ശബരിമല സംരക്ഷണ യാത്രയുടെ ഭാഗമായി ഇന്നും നാളെയും എം സി റോഡിലും തിരുവനന്തപുരം നഗരത്തിലെ പ്രധാന വീഥികളിലും ഗതാഗതം നിയന്ത്രിച്ചിട്ടുണ്ട് ഗതാഗതത്തിരക്ക് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിൽ വാഹനങ്ങൾ തിരിച്ച് വിടുമെന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഒഡീക്ഷ ആന്ദ്രതീരങ്ങളിൽ നാശം വിതച്ച തിത്ലി ചുഴലിക്കാറ്റിൽ തകർന്ന അന്തർസംസ്ഥാന വൈദ്യുത ലൈനുകൾ നന്നാക്കാത്തതിനെ തുടർന്നാണ് ഈ നടപടി

റാവത്ത് എല്ലാ വോട്ടിംഗ് മെഷീനുകളും പിഴവുകളില്ലാത്ത വിധം സുരക്ഷിതവും കേടുവരുത്താൻ സാധിക്കാത്തതുമാണെന്ന് ഇന്ത്യയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഒ

ആകാശവാണിക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് വരാൻ പോകുന്ന അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ വി

വോട്ടർപട്ടിക ശുഭ്യൂീകരിച്ച് വ്യാജ വോട്ടർമാരെ പട്ടികയ്ക്ക് പുറത്താക്കാൻ പ്രത്യേക പ്രിട്ടീട് സ്വീകരിക്കുമെന്നും ശ്രീ

തെരഞ്ഞെടൂപ്പ് സ്മയങ്ങളിൽ നവമാധ്യമങ്ങളെ ദുരുപയോഗം ചെയ്യുന്നത് തടയും പ്രവോട്ടെടുപ്പിന് രണ്ടു ദിവസം മുമ്പ് നവമാധ്യമം വഴിയുള്ള പ്രചാർണ്ണം നിർത്തുന്നത് ഉറപ്പാക്കും

കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാർക്കുള്ള ഈ ആനുകൂല്യം സംസ്ഥാനത്തും നടപ്പാക്കി ധനവകുപ്പ് ഉത്തരവിറക്കി

രക്തദാനം ചെയ്യുന്നവർക്ക് നിലവിൽ ഈ അവധിക്ക് കേരള സർവീസ് ചട്ടങ്ങളിൽ വ്യവസ്ഥയുണ്ട്

ജെ അബദുൽ മുൻ കലാമിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം വെള്ളനാട് പുനലാൽ ഡോ കലാം സ്മൃതി ഇന്റർ നാഷണൽ സയൻസ് ആന്റ് സ്പേസ് മ്യൂസിയം സംഘടിപ്പിക്കുന്ന രാജ്യാന്തര സമ്മേളനം നാളെ ആരംഭിക്കും

തെക്കേ ഇന്ത്യയിലെ കലാമിനെ കുറിച്ചുള്ള പ്രഥമ മ്യൂസിയമാണ് ഡോ

വിദേശ പ്രസിഡന്റുമാർ ഉൾപ്പെടെ ഒട്ടേറെ രാഷ്ട്ര രാജ്യാന്തര പ്രമുഖർ ഇവിടെ എത്തിയിട്ടുണ്ട്

കലാം സ്മൃതി ഇന്റർനാഷണൽ എക്സ് ലെൻസ് അവാർഡ് ഓരോ രാജ്യത്തിലെയും പ്രസിഡന്റ്മാർക്ക് നൽകി വരുന്നു ഇതിന്റെ കീഴിൽ റിസർച്ച് ആന്റ് ഇന്നവേഷൻ വിസ്ഡം ഓഫ് വീൽസ് യൂത്ത് ഫോർ യൂത്ത് എക്സ്ലെൻസ് എന്നീ പദ്ധതികൾക്കും തുടക്കമായി

എസ് ആർ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ട്ടടടടടടടട ട്രെയിൻ പ്ലാറ്റ്ഫോമിന്റെ അറ്റകുറ്റപ്പണിയെ തുടർന്ന് കൊച്ചുവേളിയിലേക്ക് മാറ്റിയ മാവേലി കേരള എക്സ്പ്രസ് ട്രെയിനുകൾ ചൊവ്വാഴ്ച മുതൽ തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും പുറൂപ്പെടും നാളെ വരെ കൊച്ചു വേളിയിൽ നിന്നാണ് പുറപ്പെടുക

സംഘം തങ്ങിയ ക്യാമ്പിലേക്ക് നാല് രക്ഷാപ്രവർത്തകരെ ഹെലികോപ്റ്ററിൽ എത്തിച്ചു